പിന്നിട്ടു

നൈറ്റ് റൈഡേഴ്സിനും കിങ്സ് ഇലവൻ പഞ്ചാബിനും ചരിത്ര ജയം

വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നടപ്പാക്കേണ്ട സുസ്ഥിര വികസന പദ്ധതികൾ മുഖ്യചർച്ചാ വിഷയമാകും

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസ്ക്കുബ്ബോധന ചെയ്യും

രാജ്യത്തെ ആറാമത്തെയും കർണ്ണാടകത്തിലെ ആദ്യത്തെയും സർവകലാശാലയാണ് മൈസൂർ സർവകലാശാല

സൺഡേ സംവാദിന്റെ ആറാം പതിപ്പിൽ സാമൂഹ മാധൃമങ്ങളിലൂടെ സംവദിക്കുക യായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന കേന്ദ്ര മന്ത്രി പ്രധാനമന്ത്രിയുടെ ജൻ ആന്തോളൻ ആഹ്വാനത്തിന് പ്രാധാനൃം നൽകണമെന്നും പ്രിയപ്പെട്ടവരുമായി വീടുകൾക്കുള്ളിൽ തന്നെ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നും ഓർമിപ്പിച്ചു വിശദാംശങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി

ആഭ്യന്തരമന്ത്രാലയം രൂപീകരിച്ച ശാക്തീകരണ ഗ്രൂപ്പ് രാജ്യത്തെ മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യകത സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്

എന്നാൽ സംസ്ഥാനങ്ങളിൽ വിവിധ സേവനങ്ങൾ പുനരാരംഭിച്ചതിനൊപ്പുറിച്ച് ഓണാഘോഷ പരിപാടികളും സംസ്ഥാനത്തിന് അകത്തൂർ പ്പുറത്തുമുള്ള വ്യാപാര വിനോദസഞ്ചാര യാത്രകളിലെ വർദ്ധന്റയുർ കേരളത്തിൽ സ്ഥിതി ഗുരുതരമാകുന്നതിന് വഴിതുറന്നതാർയി ഡോ

ഉത്സവാഘോഷ കാലയളവിന്റെ ിന്നേരിട്ടുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ സംസ്ഥാന ഭരണകൂട്ങൾക്ക് ഇതൊരു പാഠമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

തലസ്ഥാനത്ത് ഉന്നത ഉദ്യോഗ്സ്ഥ്രുമായി ചർച്ച നടത്തിയ സംഘം ഇന്നലെ എറണാകുളം സൃഢ്ട്ർശിച്ചിരുന്നു ഇന്ന് തൃശൂർ സന്ദർശിക്കും

മുംബൈയിൽ രത്നഗിരിയിലെ പ്ലാസ്മാ ചികിത്സാ കേന്ദ്രം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ പ്രാധാന്യം ശ്രീ

പകർച്ചവ്യാധിയ്ക്കെതിരായ പോരാട്ടത്തിന്റെ നിർണ്ണായക ഘട്ടത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി

ആരോഗ്യപ്രവർത്തകരും രക്തദാതാക്കളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് രക്തദാനത്തിനെത്തിയത് ആഘോഷ പരിപാടികളെല്ലാം ചുരുക്കി അവ ഓൺലൈനായി ജനങ്ങൾക്കു മുന്നിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് സംഘടന

തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ആകാശവാണി വാർത്താ മേധാവി ഡോ

രോഗബാധ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിൽ രണ്ട് ലക്ഷത്തിലേറെയാണ് മരണം ബ്രസീൽ അർജെന്റീന റഷ്യ എന്നിവയാണ് രോഗബാധ കൂടുതലുള്ള മറ്റ് രാജ്യങ്ങൾ

എല്ലിലെ രണ്ട് മത്സരങ്ങളിലും സൂപ്പർ ഓവറിലൂടെ വിജയം ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കി

എൽ ചരിത്രത്തിൽ ഇരട്ട സൂപ്പർ ഓവറിലേക്ക് നീണ്ട ആദ്യ മത്സരങ്ങളായിരുന്നു ഇന്നലത്തത്

സംയുക്ത പ്രതിപക്ഷ മുന്നണിയായ പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് നേതാക്കൾ അടക്കം കറാച്ചിയിലെ ബാഗ് ഇ ജിന്നയിലാണ് ഒത്തുകൂടിയത്

ഇരു രാജൃങ്ങളും മനാമയിൽ യു

രാജ്യങ്ങൾ തമ്മിൽ സമീധ്യാന്വും സൌഹാർദ്ദപരവുമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത പ്രസ്താവന ഉൾപ്പെടെ എട്ട് ഉഭയകക്ഷി കരാറുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പുവച്ചു ഇതേ തുടർന്ന് ഇരുരാജ്യങ്ങളും നയതന്ത്ര കാര്യാലയങ്ങൾ തുറന്നേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു

നിരോധനാജ്ഞയെ വകവയ്ക്കാതെയാണ് നൂറുകണക്കിന് പ്രതിഷേധക്കാർ നിരത്തിലിറങ്ങിയത്

ജലപീരങ്കി ഉപയോഗിച്ചെങ്കിലും പ്രക്ഷോഭത്തിന് ശമനമുണ്ടായില്ല

തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്നലെ ഇടയ്ക്കിടെ മഴ പെയ്തു